തോമസ് ഐസക്

ത ഉത്തർപ്രദേശിൽ തടവിൽകഴിയുന്ന പത്രപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ യു

മുഖ്യമന്ത്രിക്ക് കത്തയച്ചു വാർത്തകൾ വിശദമായി കൊവിഡ് വ്യാപനത്തിന്റെ രണ്ടാം തരംഗം തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ കൊവിഡ് സാഹചര്യങ്ങളും തുടർ നിയന്ത്രണങ്ങളും ചർച്ച ചെയ്യാൻ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സർവകക്ഷിയോഗം ചേരും

കേരളത്തിലെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് നിയന്ത്രണങ്ങൾ കർശനമാക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്നതുൾപ്പെടെ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസത്തെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ചും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും വോട്ടണ്ണൽ ദിവസം ലോക്ഡൌൺ ഏർപ്പടുത്തണമെന്ന് ആവശ്യം ഉയർന്നിരുന്നെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്തശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കൂ എന്നാണ് ഗവൺമെന്റ് നിലപാട് ദേഴ കോവിഡ് വാക്സിൻ സംസ്ഥാന ഗവൺമെന്റ് സൌജന്യമായിത്തന്നെ നൽകുമെന്ന് മന്ത്രി ഡോ തോമസ് ഐസക് വ്യക്തമാക്കി സഭ അംഗീകരിച്ച ബജറ്റ് നിർദ്ദേശമാണ് സൌജന്യമായി എല്ലാവർക്കും വാക്സിൻ നൽകുമെന്ന ഉറപ്പ് ആവശ്യമായ വാക്സിൻ രൊക്കം പണം നൽകി വാങ്ങാൻ ഗവൺമെന്റിന് കഴിയുമെന്നും അദ്ദേഹം ഫെയ്സ്ബുക്കിൽ കുറിച്ചു മരുന്ന് വാങ്ങുന്നതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് എല്ലാവർക്കും സൌജന്യമായി വാക്സിൻ നൽകാൻ സെക്രട്ടറീതല സമിതി രൂപീകരിച്ചതായി ഓർമിപ്പിച്ചു

പ്രളയകാലത്തെപോലെ കോവിഡ് കാലത്തും ഗവൺമെന്റിനൊപ്പം നിൽക്കാൻ ജനങ്ങൾ മുന്നോട്ടുവന്നതാണ് കോവിഡ് ചലഞ്ചിന്റെ തുടക്കമെന്നും സാധാരണക്കാരാണ് ചലഞ്ച് പ്രഖ്യാപിച്ചതെന്നും തോമസ് ഐസക് വിശദീകരിച്ചു രുദ കോവിഡ് ബാധിത ജില്ലകളിൽ രോഗ വ്യാപനം നേരിടുന്നതിന് പ്രാദേശിക നിയന്ത്രണങ്ങളും തീവ്ര പ്രതിരോധ നടപടികളും സ്വീകരിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു

കർശനമായ കോവിഡ് മാനേജ്മെന്റും നിയന്ത്രണ നടപടികളും സംസ്ഥാനങ്ങൾ പരിഗണിക്കണമെന്നും രോഗ വ്യാപനം കൂടിയ സ്ഥലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും നിർദ്ദേശമുണ്ട്

ദേഴ കോവിഡ് വാക്സിൻ നിർമാണത്തിനാവശ്യമായ അസംസ്കൃത സാധനങ്ങൾ ഇന്ത്യയിലെ നിർമാതാക്കൾക്ക് ലഭ്യമാക്കാൻ അമേരിക്ക തീരുമാനിച്ചു നിലവിൽ ഇത്തരം സാധനങ്ങളുടെ കയറ്റുമതിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കോവിഡ് രണ്ടാം തരംഗത്തിൽ ഇന്ത്യയിലെ പ്രതിദിന രോഗികളുടെ എണ്ണം മൂന്ന്ലക്ഷം കവിഞ്ഞതിനെത്തുടർന്നാണ് അമേരിക്കയുടെ നിർണായക തീരുമാനം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവനും ഇന്നലെ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തെത്തുടർന്നാണ് അമേരിക്കൻ നടപടി

ദേദ കോവിഡ് വ്യാപനം രൂക്ഷമായ എറണാകുളം ജില്ലയിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കടകളടക്കം എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ച് വരെ മാത്രമേ തുറക്കാവൂ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ അനുവാദമില്ല രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഒൻപതു വരെ പാഴ്സലായി വിതരണം ചെയ്യാം

വിവാഹം മരണാനന്തര ചടങ്ങുകൾ എന്നിവ ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം

ജിംനേഷ്യം സമ്പർക്ക കായിക വിനോദങ്ങൾ ടൂർണമെന്റുകൾ അമ്യൂസ്മെന്റ് പാർക്കുകൾ വിനോദ പാർക്കുകൾ ക്സബ്ബുകൾ എന്നിവ പ്രവർത്തനം നിർത്തിവെക്കണം

മെഡിക്കൽ സ്റ്റോറുകൾ പെട്രോൾ പമ്പുകൾ എന്നിവയെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പൊതു ഗതാഗതത്തിനും നിയന്ത്രണം ഉണ്ടാകില്ല ദര കോഴിക്കോട്ട് കോവിഡ് വ്യാപനം അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കലക്ടർ ആവശ്യപ്പെട്ടു കണ്ടയ്മെന്റ് സോണുകളിൽ ഒരു കാരണവശാലും ആൾക്കൂട്ടം അനുവദിക്കില്ല നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി

ദേദ കോവിഡ് അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലും ഒരാഴ്ച കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റിയോഗം തീരുമാനിച്ചു

ഹോട്ടലുകളിലും ബേക്കറികളിലും തട്ടുകടകളിലും പാഴ്സൽ സൌകര്യം മാത്രമേ അനുവദിക്കൂ കണ്ടെയ്മെന്റ് സോണുകളിൽ അവശ്യസാധനങ്ങൾ വിൽക്കുന്ന കടകൾ വൈകിട്ട് അഞ്ചിന് അടയ്ക്കണം

വാഹന ഡ്രൈവിങ് ടെസ്റ്റുകൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവെച്ചു

മൂന്ന് വീതം ഡോക്ടർമാരെയും നഴ്സുമാരെയും രണ്ട് ശുചീകരണ തൊഴിലാളികളെയും നിയോഗിച്ച് സങ്കേതത്തെ കോവിഡ് ഫസ്റ്റ്ലൈൻ ചികിത്സാ കേന്ദ്രമാക്കി മാറ്റി ദേദ കൊല്ലം കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിൽ രാവിലെ ആറിന് നിരോധനാജ്ഞ നിലവിൽ വന്നു പഞ്ചായത്ത് പരിധിയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നത് കണക്കിലെടുത്താണ് കളക്ടർ നിരോധനാജ്ഞ ഏർപ്പെടുത്തി ഉത്തരവിറക്കിയത്

രുര ലക്ഷദ്വീപിൽ കോവിഡ് വർധിക്കുന്നതിനെത്തുടർന്ന് കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ രണ്ട് കപ്പലുകൾ മരുന്നുകളും ഓക്സിജൻ സിലിണ്ടറുകളുമായി ദ്വീപിലെത്തി

ആന്ത്രോത്ത് ദ്വീപിലേക്കും ഇവ എത്തിച്ചുകഴിഞ്ഞു

സിനിമാ ശാലകൾ ജിംനേഷ്യം റിക്രിയേഷൻ ക്ലബ്ബുകൾ ബാറുകൾ ഓഡിറ്റോറിയങ്ങൾ എന്നിവ ഇന്ന് പുലർച്ചെ അടച്ചു

കർശന നിയന്ത്രണങ്ങൾ പാലിച്ച് പച്ചക്കറി പലവ്യഞ്ജന വിൽപ്പനശാലകൾമാത്രം തുറക്കാം ദേദ ഉത്തർപ്രദേശിൽ തടവിൽ കഴിയുന്ന പത്രപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ യു

മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തയച്ചു

എ

എ പ്രകാരം തടവിലാക്കിയ കാപ്പന് പ്രമേഹവും ഹൃദ്രോഗവും ഉൾപ്പെടെ ഗുരുതര രോഗങ്ങൾ ഉണ്ടെന്ന് പിണറായി വിജയൻ കത്തിൽ അറിയിച്ചു

ഉത്തർപ്രദേശ് ഭരണകൂടം കാപ്പന്റെ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കരുതെന്ന് ചെന്നിത്തല ഫെയ്സ്ബുക്ക് പേജിൽ കുറിച്ചു ദേദ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻമന്ത്രി കെ ആർ ഗൌരിയമ്മയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു അണുബാധ നിയന്ത്രിക്കാൻ തീവ്രശ്രമം തുടരുകയാണെന്ന് ഇന്നലെ ഉച്ചക്ക് ശേഷം പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഡോക്ടർമാർ അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അനുഷ ആത്മപ്രകാശ് വോയ്സ് ദേദ മികച്ച തിരക്കഥയ്ക്ക് എമറാൾഡ് ഫെന്നലിനാണ് പുരസ്കാരം

മികച്ച രാജ്യാന്തര ചിത്രമായി അനതർ റൌണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടു ഡാനിയൽ കലൂയയാണ് മികച്ച സഹനടൻ

അക്കാദമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും ഔദ്യോഗിക യൂട്യൂബ് ചാനലിലും അവാർഡ് പ്രഖ്യാപനം തത്സമയം കാണാം

എൽ ക്രിക്കറ്റിൽ ചെന്നൈയിൽ ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദെരാബാദിനെ സൂപ്പർ ഓവറിൽ തോൽപ്പിച്ചു